രാജ്യത്ത് ഇതുവരെ കോവിഡ് വൈറസുകളിൽ കാര്യമായി ജനിതകമാറ്റം കണ്ടെത്തിയിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രി ത ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം ഗുരുദേവന്റെ വെങ്കല പ്രതിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തിരുവനന്തപുരത്ത് അനാവരണം ചെയ്യും

പത്ത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തി

ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യസഭ പാസാക്കിയ രണ്ട് കാർഷിക ബില്ലുകൾ ചരിത്രപരമാണെന്നും കാർഷികോൽപന്നങ്ങളുടെ താങ്ങുവില തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനെതിരായ പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റത്തിന് രാജ്യം മുഴുവൻ സാക്ഷ്യം വഹിച്ചുവെന്നും പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രതിഛായക്ക് കളങ്കം ഏൽപ്പിച്ചുവെന്നും രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞു

സഭയിൽ ഉപാധ്യക്ഷനോട് മോശമായി പെരുമാറിയ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ ആവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവരുന്ന കാര്യം ബി ജെ പിയും പരിഗണിക്കുന്നുണ്ട് രമേ രാജ്യസഭയിൽ ബഹളത്തിനിടെ കാർഷിക ബില്ലുകൾ പാസാക്കാൻ ബി

പി നേതൃത്വം ഗൂഢാലോചന നടത്തിയതായി കോൺഗ്രസ് കുറ്റപ്പെടുത്തി പാർലമെന്ററി ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമാണിതെന്നും പാർട്ടി അഭിപ്രായപ്പെട്ടു ദരദ രാജ്യത്ത് നേരത്തെ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത് മൂലം കോവിഡ് മഹാമാരിയിൽ ഒട്ടേറെ മരണങ്ങൾ ഒഴിവാക്കാനായെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

ലോക്സഭയിൽ രാജ്യത്തെ കോവിഡ് മഹാമാരിയെക്കുറിച്ച് നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കോവിഡ്ബാധ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടെന്നും ഇതുപരിഹരിക്കാൻ ഗവൺമെന്റ് നടപടിയെടുക്കണമെന്നും ചർച്ച തുടങ്ങി വെച്ച കോൺഗ്രസിലെ ഡോ ശശി തരൂർ പറഞ്ഞു

ഡി

രുര രാജ്യത്ത് ഇതുവരെ കോവിഡ് വൈറസുകളിൽ കാര്യമായ ജനിതക മാറ്റം കണ്ടെത്തിയിട്ടില്ലെന്ന് ഞായറാഴ്ച സംവാദ പരിപാടിയിൽ സാമൂഹ്യ മാധ്യമം വഴി നടത്തിയ ചർച്ചയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ

ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻതോതിൽ ശേഖരിച്ച കൊറോണ വൈറസുകളുടെ പരിശോധന നടന്നു വരികയാണെന്നും ജനിതക മാറ്റം സംബന്ധിച്ച വിശദമായ ഫലം അടുത്ത മാസം ആദ്യത്തോടെ ലഭ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ദേദ കേന്ദ്രഗവൺമെന്റ് പ്രഖ്യാപിച്ച അൺലോക്ക് നാലാം ഘട്ടം ഇന്ന് പ്രാബല്യത്തിൽ വരും

സാമൂഹിക അക്കാദമിക കായിക വിനോദ സാംസ്കാരിക മത രാഷ്ട്രീയ ചടങ്ങുകൾക്കും അനുമതി നൽകും മാസ്ക് സാമൂഹ്യ അകലം തെർമൽ സ്കാനിങ് സാനിറ്റൈസർ എന്നിവ നിർബന്ധമാണ് രുമ സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്നലെയും നാലായിരം കടന്നു

വിവാഹത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ക്വാറന്റീനിൽ പോയി രുഭ അട്ടപ്പാടിയിൽ കോവിഡ്ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു അഗളി പട്ടിമാളം എ

ജെ അബ്ദുൾ കലാം ഇന്റർനാഷണൽ ട്രൈബൽ സ്കൂളിൽ ആണ് ഫസ്റ്റ് ലൈൻ ട്രീന്റ്മെന്റ് സെന്റർ പ്രവർത്തിക്കുന്നത്

ആവശ്യമെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടൈൻമെന്റ് സോണിനടുത്ത പ്രദേശത്തും നിയന്ത്രണം കൊണ്ട് വരും രുമ ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുദേവനാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയം പ്രചരിപ്പിച്ചത് വിശദ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രെ ശ്രീനാരായണ ഗുരുദേവന്റെ വെങ്കല പ്രതിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം ഒബ്സർവേറ്ററി ഹിൽസിൽ അനാവരണം ചെയ്യും നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ നൂറാം വാർഷിക സ്മരണക്കായാണ് സംസ്ഥാന ഗവൺമെന്റ് തലസ്ഥാനത്ത് പ്രതിമ സ്ഥാപിച്ചത് കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ഒത്തുചേരലുകൾ പരമാവധി ഒഴിവാക്കിയായിരിക്കും ഗുരുദേവ വിശ്വാസികൾ സമാധി ദിനം ആചരിക്കുന്നത്

ഗുരുദേവ കൃതികളുടെ പാരായണവും പ്രത്യേക പ്രാർത്ഥനകളും ദൈവദശകം ആലാപനവും ദീപാരാധനയും ഉണ്ടാകും

പി യൂണിയനുകളും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും പരിമിതമായ ചടങ്ങുകളോടെ ഗുരുദേവ സമാധിദിനം ആചരിക്കും

ഇവരെ മൂന്നു ദിവസത്തിനുള്ളിൽ പട്യാല കോടതിയിൽ ഹാജരാക്കുന്നതിന് കോടതി ട്രാൻസിറ്റ് വാറന്റ് അനുവദിച്ചു

രുദ ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട ന്യൂനമർദ്ദത്തെത്തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാനിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ പത്തനംത്തിട്ട കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്

കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി രുമ കണ്ണൂരിൽ മഴയ്ക്ക് ഇന്ന് അൽപം ശമനമുണ്ടായെങ്കിലും ദുരിതത്തിന് കുറവു വന്നില്ല നെൽപാടങ്ങൾ പലയിടങ്ങളിലും വെള്ളത്തിലാണ്

ശശിധരൻ

മലാപ്പറമ്പിലും ഒളവണ്ണയിലും കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു രുമ മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലായി

കടൽ തീരത്തുള്ളവരോട് അതീവ ജാഗ്രത പാലിക്കാനും ഒരു കാരണവശാലും കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയിൽ മലയോര മേഖലയിലെ പാലങ്ങൾ വെള്ളത്തിനിടിയിലാകുന്ന സ്ഥിഥിതിയിലാണ്

ഡാമുകൾ തുറന്നതോടെ പുഴകൾ നിറഞ്ഞു ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം എത്തുന്ന തമിഴ്നാട്ടിലെ ആളിയാർ ഡാം ഇന്നലെ വൈകീട്ട് തുറന്നു വാളയാർ ഡാം ഇന്ന് തുറക്കും രേര കാസർകോട് ജില്ലയിൽ കയ്യൂരിൽ എട്ട് കുടുംബങ്ങളെയും പൊതാവൂരിൽ അഞ്ച് കുടുംബങ്ങളെയും മാറ്റിത്താമസിപ്പിച്ചു

മുതിരപ്പുഴ പന്നിയാർ പെരിയാർ പാമ്പാർ തുടങ്ങിയ പുഴകളിൽ നീരൊഴുക്ക് ശക്തമാണ് അണക്കെട്ടുകളിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയരുന്നുണ്ട്

ഡാമുകളും പരമാവധി ചാലക്കുടിപ്പുഴയിലേക്ക് വെള്ളം ഒഴുകിവരുന്ന തമിഴ്നാട്ടിലെ ഷോളയാർ പറമ്പിക്കുളം ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് രുമ എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഇല്ലിത്തോട് ഒന്നാം ബ്ലോക്കിൽ ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ രണ്ട് അതിഥി തൊഴിലാളികൾ മരിച്ചു

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തി ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സൂപ്പർ ഓവറിലേക്ക് നീണ്ട പോരാട്ടത്തിൽ വിജയലക്ഷ്യമായ മൂന്ന് റൺസ് ഡൽഹി നാല് പന്ത് ബാക്കി നിൽക്കെ മറികടക്കുകയായിരുന്നു

സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിനെ രണ്ടു റൺസിന് പുറത്താക്കിയ കഗീസോ റബാദയാണ് ഡൽഹിയുടെ വിജയശിൽപി

മത്സരത്തിനിടെ ഡൽഹി താരം ആർ